കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നാളെ സ്റ്റാർട്ട് അപ്പ് ഇൻക്യൂബേഷൻ സെന്ററും മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും

കാസർഗോഡ് ഇരട്ടകൊലപാതക ക്ലേസിന്റെ അന്വേഷണം സി ബി ഐയ്ക്ക് വിടണമെന്ന് ആപ്പശ്യപ്പെട്ട് പ്രതിപക്ഷനേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി

നിലവിലെ അന്വേഷണ് തൃപ്തികരമല്ലാത്തതിനാൽ ഹൈക്കോടതിയെ സ്ട്മീപിക്കുമെന്ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെ പിതാവ്

അംഗൻവാടികളിൽ നൽകുന്ന ഭക്ഷണത്തിന്റ ഗുണനിലവാരം ഉറപ്പാക്കാൻ ക്വാളിറ്റി അഷ്വറൻസ് സ്ക്വാഡിനെ നിയോഗിച്ചതായി ആരോഗ്യ മന്ത്രി

തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ബി ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷാ നാളെ കേരളത്തിൽ

കുടുംബശ്രീയുടെ നേതൃത്വത്തിലുളള സംസ്ഥാനത്തെ ആദ്യ ഇറച്ചിക്കോഴി ഉത്പാദക കമ്പനി നാളെ പാലക്കാട്ട് പ്രവർത്തനം ആരംഭിക്കും ശിലാസ്ഥാപനം കണ്ണൂർ കല്യാട് സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നാളെ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഉത്തര മലബാറിന്റെ വികസനത്തിനും ആയുർവ്വേദ മേഖലയ്ക്കും വലിയ സംഭാവനയായി മാറമെന്ന് കരുതപ്പെടുന്ന കേന്ദ്രം ഇത്തരത്തിൽ രാജ്യത്തെ ആദ്യത്തെ ഏറ്റവും വലിയ സംരംഭമാണ് മൺമറഞ്ഞ് പോകുന്ന നാട്ടറിവുകളേയും ഔഷധസസൃങ്ങളേയും സംരക്ഷിച്ച് ശാസ്ത്രീയമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവേഷണകേന്ദ്രം സ്ഥാപിക്കുന്നത്

സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മലബാറിലെ ്പരമ്പരാഗത വൃവസായങ്ങളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും യുവസംരഭകരുടെ സ്റ്റാർട്ട് അപ്പ് ആശയങ്ങൾക്ക് അവസരമൊരുക്കുകയുമാണ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്

ആശ്രാമം മൈതാനത്ത് നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർ പി

കൊലപാതകം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യഥാർത്ഥ പ്രതികളെ തിരിച്ചറിയുന്നതിനോ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുന്നതിനോ ഗൂഢാലോചനയിലെ പങ്കാളികളെ തിരിച്ചറിയാനോ കഴിയാതെ സംസ്ഥാന പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് യഥാർത്ഥപ്രതികളെ രക്ഷിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തുവരാതിരിക്കാനും തുടക്കം മുതൽ തെളിവുകൾ ഇല്ലാതാക്കാനും പാർട്ടി തലത്തിൽ നിരന്തരമായ ഇടപെടലുകളാണ് നടന്നുവരുന്നതെന്ന് രമേശ് ചെന്നിത്തല കത്തിൽ സൂചിപ്പിക്കുന്നു നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഭവത്തിൽ ഉദുമ എം

എയുടെയും മുൻ എം

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇതേ ആവശ്യം ഉന്നയിച്ചു പെരിയ കേസ് നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കാസർകോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ അറിയിച്ചു കൊല നടത്തിയത് പുറത്ത് നിന്നുള്ളവർ ആണെന്നും പിന്നിൽ കൂടുതൽ പേരുണ്ടെന്നും കൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തിയല്ലാത്തതിനാലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതെന്നും കൃഷ്ണൻ പറഞ്ഞു കൊലപാതകത്തിൽ പ്രാദേശിക സി പി എം നേതാക്കൾക്ക് പങ്കുണ്ടെന്നും കൃഷ്ണൻ ആരോപിച്ചു അതേസമയം കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ വീട് ഇന്ന് രാവിലെ മന്ത്രി ഇ

പിതാവ് സത്യനാരായണനെ ആശ്വസിപ്പിച്ചാണ് മന്ത്രി മടങ്ങിയത് ഇരട്ടക്കൊലപാതകകേസ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ്സ് പ്രവർത്തകരുടെ വീട് മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ച സംഭവം താൻ വിമർശിച്ചെന്ന നിലയിൽ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് എൽഡിഎഫ് കൺവീനർ എ

മാധ്യമ പ്രവർത്തകർ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ മന്ത്രിയ്ക്ക് സന്ദർശിക്കാമെന്നാണ് പറഞ്ഞത്

എൽഡിഎഫ് പ്രതിനിധി എന്ന നിലയിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടില്ലെന്നും ശ്രീ വിജയരാഘവൻ അറിയിച്ചു

കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്ന് സൂചന കാളിറ്റി അഷറൻസ് സ്കാഡ് അംഗൻവാടികളിൽ നൽകുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ളവയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വനിത ശിശുവികസന്വകുപ്പ് ക്വാളിറ്റി അഷ്വറൻസ് സ്ക്വാഡിനെ നിയോഗിച്ചതായി മന്ത്രി കെ

ജെ

നാളെ പാലക്കാട്ട് ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രഭാരിമാർ വിസ്താരക് കൺവീനർമാർ ജില്ലാ അധൃക്ഷന്മാർ എന്നിവരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും കോട്ടമൈതാനത്തു നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പേജ് പ്രമുഖർ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലേതടക്കമുള്ള ബൂത്തുതല കൺവീനർമാർ എന്നിവരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും

സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം നിരസിച്ച് ഇറക്കിയ പ്രസ്താവനയിലാണ് എൻ എസ് എസ് ഇക്കാരൃം അറിയിച്ചത് മുഖ്യമന്ത്രിയോടും ശ്രീ കോടിയേരി ബാലകൃഷ്ണനോടും ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്ന് തവണ അഭ്യർത്ഥിച്ചിട്ടും നിരവധി അനുകൂലമായ പ്രതികരണമുണ്ടായില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു

വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ഭിന്നശേഷിയിലുള്ള യുവജനതക്കായി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച ആദ്യത്തെ പ്രീമാരിറ്റൽ കൌൺസിലിംഗിന്റെ സംസ്ഥാന തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിവിധതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സംസ്ഥാന ഗവൺമെന്റ് സവിശേഷമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു

പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട്ടിലെ കൽപ്പറ്റയിൽ മന്ത്രി എ

നിരാശ്രയരായ അഗതി കുടുംബങ്ങളെ കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്ന ആശ്രയ പദ്ധതി വിപുലീകരിച്ചാണ് അഗതിരഹിതകേരളം പദ്ധതി നടപ്പാക്കുന്നത്